കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അഭിപ്രായ സമന്വയം വേണമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി

ടി സിക്ക് മുന്നോട്ടുപോകാനാവില്ലെന്ന് ഗതാഗത മന്ത്രി

സ്വർണ്ണം പിടിച്ചെടുത്തു ഇന്ന് ദേശീയ ന്യൂനപക്ഷ ദിനം

കേന്ദ്ര തൊഴിൽ സഹമന്ത്രി തൊഴിലാളികൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അഭിപ്രായ സമന്വയം വേണമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി സന്തോഷ് ഗാങ്വാർ പറഞ്ഞു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം തൊഴിലാളികൾക്ക് ചികിത്സാ ആനുകൂലൃങ്ങൾ നൽകുന്ന കാര്യത്തിൽ കേരളം വളരെ സംസ്ഥാനത്തെ ഇ

ആശുപത്രികൾ രാജ്യത്തിനാകെ മാതൃകയാണെന്നും ശ്രീ

കൊച്ചിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു കേന്ദ്ര സൃഷ്മൃന്തി ഈ മേഖലയിലെ തൊഴിലാളികളുടെ വേതനം ഉറപ്പാക്കാൻ കേന്ദ്രം നടപടികൾ സ്വീകരിച്ചുവരികയാണെന്ന് മന്ത്രി പ്പറഞ്ഞു എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും ക്ഷേമമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നയമെന്ന് മന്ത്രി ടി

അതിഥി തൊഴിലാളികൾക്കായി ഗിവൺമെന്റ് നടപ്പിലാക്കുന്ന അപ്പനാ ഘർ പദ്ധതി എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ജനുവരി രണ്ടാം വാരത്തിനുള്ളിൽ മറുപടി നൽകണം

പൌരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അടിയന്തരമായി തടയണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം സമർപ്പിച്ച ഒരുകൂട്ടം ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്

കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അദ്ധ്യക്ഷതയിൽ ചേരുന്ന കൌൺസിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായി നികുതിപിരിവ് ഘടന പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട്

ആർ

സി കടുത്തൂ സാമ്പത്തിക പ്രതിന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഗതാഗ്രത് മന്ത്രി എ

ശശീന്ദ്രൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായമില്ലാതെ കോർപ്പറേഷന് മുന്നോട്ടു പോകാനാവാത്ത സാഹചര്യമാണെന്നും മന്ത്രി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

കുവൈത്തിൽ നിന്ന് രാവിലെ എത്തിയ രണ്ട് ആന്ധ്രാ സ്വദേശികളിൽ നിന്നാണ് സ്വർണ്ണം പിടികൂടിയത്

നെടുമ്പാശ്ശേരിയിലെത്തിയ മുംബൈ സ്വദേശിയായ മറ്റൊരു യാത്രക്കാരനിൽ നിന്നും ഡി

ഐ

കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിയായ യാത്രക്കാരനിൽ നിന്ന് മൂന്ന് കിലോ സ്വർണ്ണം പിടികൂടിയിരുന്നു സവാള വില സവാള വില കുറയ്ക്കുന്നതിന് ഗവൺമെന്റ് നടപടി ത്വരിതപ്പെടുത്തിയതായി മന്ത്രി വി

ഇതിനായി നാഫെഡ് വഴി ഹോർട്ടികോർപ് ഉള്ളി സംഭരിച്ചിട്ടുണ്ട്

വിദ്ദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതോടെ ഉള്ളിവില ഇനിയും കൂർയുമെന്നാണ് പ്രതീക്ഷ

അസം സ്വദേശി രാഹുൽ ആണ് ഒളരിയിൽ നിന്ന് പിടിയിലായത് റിമാൻഡ് പ്രതികളായ ആറുപേർക്കായി തിരച്ചിൽ തുടരുന്നു അവാർഡ് ഈ വർഷത്തെ സംസ്ഥാന ഉൌർജ്ജ സംരക്ഷണ അവാർഡുകൾ മന്ത്രി എം

ശ്രീകാര്യം എനർജി മാനേജ്മെന്റ് സെന്ററിൽ ഉച്ച തിരിഞ്ഞാണ് പരിപാടി

ഡി എഫ് നിയോഗിച്ച സമിതി ഇന്ന് റിപ്പോർട്ട് കൈമാറും ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരം കൻടോൺമെന്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവിനാണ് റിപ്പോർട്ട് കൈമാറുക

ഉടമസ്ഥരായ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ബിലീവേഴ്സ് ചർച്ചിനും മുൻ ഉടമസ്ഥരായ ഹാരിസൺ മലയാളം പ്ലാന്റ്റ്ഷ്നും കോടതി നോട്ടീസ് അയച്ചു കേസ് ജനുവരി ആദ്യവാരം വീണ്ടുര് പരിഗണിക്കും ഗവൺമെന്റിനു വേണ്ടി കോട്ടയം ജില്ലാ കളക്ടർ ്ഗവൺമെന്റ് പ്ലീഡർ മുഖേനയാണ് ഹർജി നൽകിയത്

ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ ഡോ

ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും വഴുതയ്ക്കാട് ടഗോർ തിയേറ്ററിൽ വൈകിട്ടാണ് പരിപാടി

ഏറ്റവും ഒടുവിൽ ലഭ്യമായ സൂചന അനുസരിച്ച് കണ്ണൂർ നഗരസഭയിലെ എടക്കാട് ഡിവിഷനിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി

എഫും ഒരു സീറ്റിൽ യു

പതിയാക്കര എട്ത്തുംകര കൂട്ടങ്ങാനം കോളങ്ങാട് വാർഡുകൾ എൽ

ഡി

തിരുവല്ല കടപ്രയിൽ എൽ

എഫിന് അട്ടിമറി ജയം

ഡി എഫിൽ നിന്ന് എൽ

എഫ് സീറ്റ് പിടിച്ചെടുത്തു കാസർഗോഡ് നഗരസഭ ഹൊണ്ണമൂല വാർഡിൽ എൽ ഡി

മുസ്തീംലീഗിൽ നിന്നാണ് സീറ്റ് പിടിച്ചെടുത്തത് ബളാൽ പഞ്ചായത്തിലെ മാലോത്ത് വാർഡിൽ യു ഡി

കേരളാ കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി പി ജെ ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ മൽസരിച്ച കോട്ടയം ജില്ലയിലെ അകലക്കുന്ന് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു

ആദ്യദിനത്തിൽ ഒമ്പത് ഫൈനലുകൾ നടക്കും

വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു

ചെന്നൈയിൽ നടന്ന ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനായിരുന്നു വിജയം

എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ്

വൈകിട്ട് ആറിന് ഗുവാഹത്തിയിലാണ് മത്സരം

സ്കൂളുകളിൽ പ്രത്യേക ചോദ്യക്കടലാസ് തയ്യാറാക്കി ക്ലാസ്സ് പരീക്ഷയാണ് നടത്തുകയെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു

വൈകിട്ട് കട്ടപ്പന ടൌൺ ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും